കൊറോണ വാക്സിൻ കണ്ടെത്തുന്നതുവരെ ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഐ

ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് കിങ്സ് ഇലവൻ പഞ്ചാബ്

ജനതാ കർഫ്യൂ മുതൽ ഇക്കാലം വരെ ഇന്ത്യയിലെ ജനങ്ങൾ വലിയ പോരാട്ടമാണ് നടത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അതിനാൽ ഉദാസീനത് പ്രിട്ടില്ലെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസ്യർരിക്ക്വേ പ്രധാനമന്ത്രി പറഞ്ഞു മാനവരാശിയെ രക്ഷിക്കാനുള്ള് ് പ്ടോരാട്ടത്തിലാണ് ലോകം വാക്സിൻ കണ്ടെത്താനുള്ള് ശ്രമ്ം വിവിധ രാജ്യങ്ങളിൽ പുരോഗമിക്കുകയാണ് ഔരോരുത്തതർക്കും വാക്സിൻ എത്തിക്കാൻ സർക്കാർ വിശദമായ മാർഗ്ഗരേഖ തയ്യാറാക്കുകയാണ്

ആത്മാർത്ഥമായ സേവനം കാഴ്ചവയ്ക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആരോഗൃപ്രവർത്തകരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തു മ്പോൾ ഇന്ത്യയിൽ മരണനിരക്ക് കുറവാണ് അതേസമയം രോഗമുക്തി നിരക്ക് ഉയർന്നതാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം തിരഞ്ഞെടുപ്പ് പ്രചാരണം ദുഷ്ക്കരമായത് കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ശുപാർശയെ തുടർന്നാണ് കേന്ദ്ര അനുമതി

ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് പദ്ധതികൾ തൃ്യാറാക്കാനുള്ള വിശദമായ മാർഗ്ഗനിർദ്ദേശം ഇതിലുണ്ട് തിദ്ദേശീയ വിഭവങ്ങൾക്കും ജനാഭിലാഷത്തിനും ഊണ്ട് നൽകി പദ്ധതി തയ്യാറാക്കാൻ വഴികാട്ടിയാകും ഈ നിർദ്ദേ്ദ്ശങ്ങളെന്ന് മന്ത്രി പറഞ്ഞു

മഹാമാരിയെ ചെറുക്കാൻ ജാഗ്രത കൈവിടരുതെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാനും ശ്രീ ഷാ അഭ്യർത്ഥിച്ചു

ഇറ്റലി യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കോവിഡിന്റെ രണ്ടാംവരവ് കനത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്

ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് സ്മാരകത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ആഭൃന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും വീരമൃത്യു വരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം സ്മരണാഞ്ജലി അർപ്പിക്കും

ടി

അൻപതിനായിരം രൂപ നഷ്ടമായ അന്ധേരിയിലെ ക്ഷീരവ്യവസായി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി ഓൺലൈൻ പണമിടപാടിൽ ജാഗ്രത പുലർത്തണമെന്നും അക്കൌണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്നും പോലീസ് അഭ്യർത്ഥിച്ചു

വടക്കൻ ക്കർണാടകയിലെ രക്ഷാ പ്രവർത്തനങ്ങൾ ക്കായി നാലു സേനാ സം ്ഘങ്ങളെയും ദേശീയ ദുരന്തനിവാരണ സേനയുടെ എട്ട് സംഘങ്ങളെയും വിനൃസിച്ചിട്ടുണ്ട്

എൽ വാതുവയ്പ്പിനെതിരെ നടപടി ശക്തമാക്കിയ പോലീസ് കത്വയിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു

എല്ലിൽ നിലവിലെ ഒന്നാം സ്ഥാനക്കാരായ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് കിങ്സ് ഇലവൻ പഞ്ചാബ് ഒരു റിപ്പോർട്ട്

മത്സരത്തിൽ സെഞ്ചറി നേടിയ ശിഖർ ധവാന്റെ ബാറ്റിംഗ് വിഫലമാകുന്ന കാഴ്ചയാണ് ഐ

മുറുപടി ബാറ്റിംഗിനിറങ്ങിയ കിങ്സ് ഇലവൻ പഞ്ചാബ് ഒരു ഓവർ ആപ്പ്ശേഷിക്കെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നും ഇ്ന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ്ട് ബ്ർംഗ്ലൂരിനെ നേരിടും

അടുത്ത മാസം മൂന്നിനാണ് വോട്ടെടുപ്പ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രിക സമർപ്പണം ഇന്നലെ അവസാനിച്ചു

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലായ ശേഷം ഇതാദ്യമായി യു

വീസ ഇളവു ചെയ്യാൻ ഒരു അ്റബ് രാജ്യവുമായി ഇസ്രയേൽ കരാർ ഒപ്പിടുന്നത് ഇതാദൃമിട്ടിയാണ്

അന്നുതന്നെ മാലദ്വീപിലും എത്തും മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സന്ദർശനം

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി വെളളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും നഗോർ നോകരബാഖിലെ സംഘർഷം അവസാനിപ്പി ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച മേഖലയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ സംഘർഷം മൂർച്ഛിച്ചതായാണ് റിപ്പോർട്ട് മൂന്നാഴ്ചയായി സംഘർഷാവസ്ഥ തുടരുകയാണ്

അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എയർ ക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സാങ്കേതിക വിദഗ്ദ്ധർ സ്ഥലത്ത് തങ്ങുന്നുണ്ട്

പരുത്തി ലിനെൻ പട്ട് ചണം മുതലായ്പ്പ് കൊണ്ടു നിർമമ്മിച്ച സാരികൾ മറ്റ് തുണിത്തരങ്ങൾ ആഡ്രബ്ര ആഭരണങ്ങൾ മുഖാവരണം കൈയ്യുറകൾ പരവതാനികൾ തുടങ്ങിയവയും പ്രദർശനത്തിനുണ്ട്